ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു

കൊച്ചിയില്ലെത്തി

എ

ഈ മാസം മൂന്നിന് ആരംഭിച്ച മൂന്നാംഘട്ട ലോക്ഡൌൺ ന് ഇന്നവസാനിക്കും

കേരളത്തിൽ മഴ തുടരും

കൊണ്ട ഉം പുൻ ചുഴലിക്കാറ്റ് വടക്കു പടിഞ്ഞാറു ദിശയിലേക്ക്നീങ്ങുന്നു

സ്യശ്രിയ ഭാരത് സാമ്പത്തിക പാക്കേജിന്റെ അഞ്ചാം ഘട്ടം പ്രഖ്യൂർപിക്കുകയായിരുന്നു അവർ രാജ്യത്തെ ജില്ലാ ആശുപത്രികളിലൂർ ്പകർച്ച വ്യാധി ചികിത്സാ ബ്ലോക്കുകൾ തുടങ്ങും ഓരോ പ്ലോക്കുകളിലും ഒരു പബ്പിക് ഹെൽത്ത് ലബോറട്ടറികൾ സ്ഥാപിക്കുമെണ്ണും മന്ത്രി പറഞ്ഞു

നാല് മണിക്കൂർ സ്വയംപ്രഭാ ഡ്ടിടിഎച്ച് സംവിധാനം തുടങ്ങും

രാജ്യം നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാറിന്റെ ആശ്വാസ പദ്ധതികളിലൂടെ നിരവധി പേർക്ക് സഹായം ലഭിച്ചതായും ശ്രീമതി നിർമല സീതാരാമൻ പറഞ്ഞു

ദുബായ് അബുദാബി ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നും ഇന്ന് നാല് വിമാനങ്ങൾ കേരളത്തിൽ എത്തും ഇതിൽ മൂന്നെണ്ണവും കൊച്ചിയിലേക്കാണ്

ചരക്ക് നീക്കം ആരോഗ്യമേഖല അടിയന്തിര സർക്കാർ ഡ്യൂട്ടി മാധ്യമങ്ങൾ മറ്റ് അത്യാവശ്യ സർവീസുകൾ എന്നിവയ്ക്ക് മാത്രമാണ് യാത്രാനുമതിയുള്ളത്

ഇവരിൽ ഏഴ് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും ശ്രീണ്ട് ്പേർ വീതം തമിഴ്നാട് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നൂർ വൃന്നതാണ്

മഴ ശക്തമാകാനിടയുള്ള കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്